ആരാധാനാലയങ്ങളും റസ്റ്റോറന്റുകളും തുറന്നു

കേരളത്തിൽ ഇളവുകൾ നാളെ പ്രാബലൃത്തിൽ വരും

സ്ഥലങ്ങളിൽ സർക്കാർ ഒാഫീസുകൾ പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങി

നാലുലക്ഷത്തിലേറെയായി

കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദേശമുണ്ട്

ആരാധനാലയങ്ങളിൽ പ്രസാദം വിതരണം ചെയ്യാൻ പാടില്ല

റെസ്റ്റോറന്റുകൾ പാഴ്സൽ സൌകര്യം കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നും നിർദേശമുണ്ട്

ആൾക്കൂട്ടം പൂർണമായും ന്നീർോധിച്ചിട്ടുണ്ട് കേരളത്തിൽ കേന്ദ്ര നിർദേശം പാലിച്ച് നിയ്യന്ത്രണങ്ങളോടെ നാളെയാണ് മാളുകളും ഹോട്ടലുകളും ആരാധ്നാലയങ്ങളും തുറക്കുന്നത് ഇതിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്

ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ മുൻഗണന നല്കാനാണ് ജീവനക്കാരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ അതത് ജില്ലയിലെ അത്യാവശ്യം ജീവനക്കാരെ ഉപയോഗിച്ച് ദൈനദിന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്

ചികിത്സയിലുള്ളത്

കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ മഹാരാഷ്ട്രയാണ് ഇപ്പോഴും മുന്നിലുള്ളത്

എട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

സംസ്ഥാനത്തെത്തുന്ന പ്രവാസികളിൽ ഹോം കാറന്റൈൻ സൌകര്യമില്ലാത്തവർക്ക് സർക്കാർ സൌകര്യം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു

ഒരു റിപ്പോർട്ട്

ഇതിനായി മെഡിക്കൽ ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികൾ പോഷകാഹാര വിദഗ്ദ്ധർ എന്നിവരും മെഡിക്കൽ സ്റ്റോർ വൃക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ മാസ്ക് ജീവൻ രക്ഷാട് ഉപ്ക്കരണങ്ങൾ എന്നിവയും കപ്പലിൽ സജ്ജമാക്കിയിട്ടുണ്ട് ് ക്ട്വീഡ് പ്രതിരോധത്തിനായി ഇന്ത്യൻ നാവികസേന വികസിപ്പിച്ചെടുത്ത നൂതന ഉപകരണങ്ങളും കപ്പലിലുണ്ടാകും പോർബന്തറിൽ എത്തുന്നുവർക്കായി എല്ലാ അടിസ്ഥാന സൌകരൃങ്ങളും ഒരുക്കിയിട്ടുണ്ട്

ചിലർ രോഗലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ യാത്രയിലുടനീളം കർശനമായിരിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേസരി വിക്ടോറിയ തുറമുഖത്തെത്തിയത്

ഭൂമി ജനങ്ങളെ വേർതിരിക്കുന്നു സമുദ്രം ഒന്നിപ്പിക്കുന്നുവെന്ന് സമുദ്ര ദിന സന്ദേശത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു എല്ലാ മേഖലയുടെയും സുരക്ഷയും വളർച്ചയുമാണ് സാഹരം അർത്ഥമാക്കുന്നതെന്നും ശ്രീ ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു

ഭക്ഷ്യ സുരക്ഷയും സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വിശദാംശങ്ങളുമായി ദേവി പ്രിയ

മേയ് ജൂൺ മാസങ്ങളിലായി അഞ്ച് കിലോഗ്രാം വീതം സൌജനൃമായാണ് ഭക്ഷ്യധാനൃം വിതരണം ചെയ്യുന്നത് ഇതിന് പുറമെ പയർ വർഗ്ഗങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും വിതരണം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിലവിലെ സാഹചര്യം പരിഗണിച്ച് എല്ലാവരും കുറച്ച് കൂടി സഹകരിക്കണമെന്ന് മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു